അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനത്തി നെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീ ന്ദ്രൻ ചട്ടം ലംഘിച്ച മുന്നൂറിലധികം ബസ്സുകൾക്ക് മോട്ടോർവാഹനവകുപ്പ് നോട്ടീസയ്ച്ചു

കേരളാ തീരത്ത് ഇന്ന് അർദ്ധരാത്രി വരെ ശക്തമായ തിരമാ ലയ്ക്ക് സാധൃതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം സംസ്ഥാനത്ത് അടുത്ത തിങ്കളാഴ്ച മുതൽ കനത്ത മഴയ്ക്കും സാധ്യത ഇന്ന് ലോക മലമ്പനി ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത രാജ സ്ഥാനുമായി ഏറ്റുമുട്ടും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിക്കെതിരായ ലൈംഗിക പീഡന പരാതി സംബന്ധിച്ച ഗൂഢാലോചന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപവത്കരിക്കുന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഉത്തരവിറക്കും ജുഡീഷ്യറിക്കെതിരായി ആക്രമണം നടത്തുന്ന സമ്പന്നരായ ഉന്നതന്മാർ തീക്കൊണ്ട് കളിക്കുകയാണെന്നും അവർ ഇത് അവസാനിപ്പിച്ചേ മതിയാകൂവെന്നും കേസ് പരിഗണിക്കുന്ന ബഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് അരുൺമിശ്ര പറഞ്ഞു

സുപ്രീം കോടതിയെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഉയർന്നുകേൾക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സത്യം എന്തെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും കോടതി വ്യക്തമാക്കി അതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ നീങ്ങാൻ ചിലർ തന്നെ സമീപിച്ചെന്ന് അവകാശപ്പെട്ട അഭിഭാഷകൻ ്ഉത്സവ്സിംഗ് ഇന്ന് കോടതിയിൽ പുതിയ സത്യവാങ്മൂലൂം നൽകി വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ഉത്സവ് സ്റിംഗിന് പ്രത്യേക അവകാശമില്ലെന്ന് അറ്റോർണി ജനറൽ കോടതിയെ ബോധിപ്പിച്ചു അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബ്സ്സുക്ളിലെ നിയമലംഘനത്തി നെതിരെ കർശന നടപടിയെടുക്കു്മെന്നും മോട്ടോർവാഹനവ കുപ്പിന്റെ പരിശോധന തുടരുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് അറിയിച്ചു നിലവിലെ ലൈസൻസ് നിയമ ത്തിലെ പഴുതുക്ളടച്ച് സുവ്യക്തമായ മാർഗ്ഗനിർദേശത്തോടെ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുമെന്നും ലംഘിക്കുന്നവർക്കെ തിരെ കർശ്നു നട്പടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളുടെ ചട്ടലംഘനം പരി ശോധിക്കാ്നും പരിഹാരനടപടികൾ സ്വീകരിക്കാനും ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കു കയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ഡി ജി പി ഗതാഗതവകുപ്പ് കമ്മീഷണർ കെ

സി മാനേജിങ് ഡയറക്ടർ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അന്തർസംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളിൽ മോട്ടോർ വാഹനവകുപ്പിന്റെ പരിശോധന ഇന്നും തുടർന്നു

കല്ലട ബസ്സിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹനവകുപ്പ് ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് നടപടി

ജിപിഎസ് ഘടിപ്പിക്കുന്നതോടെ കമ്മീഷണർ ഓഫീസുകളിൽ നിന്നും ബസ്സുകളെ നിരീക്ഷിക്കാൻ കഴിയും പ്രധാനമന്ത്രി ന്രേന്ദ്രമോദി നാളെ വാരണാസിയിൽ നാമ നിർദ്ദേശപ്പത്രിക് സമർപ്പിക്കും മുതിർന്ന എൻ

എ

പ്രസിഡന്റ് നിധീഷ് കുമാർ ശിവസേ ന നേതാവ് ഉദ്ധവ് താക്കറെ ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിങ് ബാദൽ ലോക് ജനശക്തി പാർട്ടി നേതാവ് രാം വിലാസ് പാസ്വാൻ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് പ്രധാ നമന്ത്രിക്കൊപ്പമെത്തും ഇന്ന് പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ്ഷോയും സംഘ ടിപ്പിക്കുമെന്ന് ബി

കേന്ദ്രങ്ങൾ അറിയിച്ചു

തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ അവലോ കനം ചെയ്യാനാണ് യോഗം ചേരുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പിഎസ് ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല വിഷയത്തെകുറിച്ച് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംസാരിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി നേതാവായിരുന്ന കെ ജി മാരാരുടെ അനുസ്മരണ ദിനാചരണം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഇത്തവണ ഒരു കേന്ദ്രത്തിൽ നടക്കും

സ്ഥലത്ത് കേന്ദ്ര സംസ്ഥാന സേനക്ളുടെ ത്രിതല സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കാട്ടാനശലൃ പ്രദേശമായതിനാൽ വനം വകുപ്പിന്റെ പ്രതേക സംഘവും പരിശോധന നടത്തുന്നുണ്ട്

ഇതുസംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ് കരൻ ഇലക്ടറൽ രജിസ് ട്രേഷൻ ഓഫീസർക്ക് നിർദേശം നൽകി ഈ വാർഡുകളിലെ കരട് വോട്ടർപട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും

കേസന്വേഷണത്തിന് ഹൈദ്രബാദിലേക്ക് പോയ തൃക്കാ ക്കരയിലെ പൊലീസ് സംഘത്തിന്റെ വാഹനം കോയമ്പത്തൂ രിൽ അപകടത്തിൽ പെട്ട് ഒരാൾ മരിച്ചു മൂന്ന് പൊലീസു കാർക്ക് പരിക്കേറ്റു പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധ പ്പെട്ട് കൊച്ചി ഇൻഫോപാർക്ക് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കുന്നതിനാണ് സംഘം പോയത് വാഹനത്തിലുണ്ടായിരുന്ന പരാതിക്കാരുടെ ബന്ധുവാണ് മരിച്ചത്

ജമ്മു കശ്മീരിലെ അനന്തനാഗിൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ വധിച്ചു

ഭീക രരിൽ നിന്നും തോക്കും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടു ത്തു പ്രദേശത്ത് സൈന്യം പരിശോധന നടത്തി

സംഭവ ത്തിൽ കാസർകോട് സ്വദേശിയായ യാത്രക്കാരനെയും സഹാ യിയെയും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു കേരള തീർത്ത് ഇന്ന് അർധരാത്രിവരെ ശക്തമായ തിരമാ ലയ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഒന്നരമുതൽ രണ്ടേകാൽ മീറ്റർവ്രെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാനും സാധ്യത യുണ്ട്

ശനിയാഴ്ച മുതൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും തമിഴ്നാട് തീരത്തും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

വേനൽമഴയിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് എട്ടുവരെ ശക്തമായ ഇടിമിന്നൽസാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്ന റിയിപ്പ് നൽകി

ഇടിമിന്നൽ തുടങ്ങുമ്പോൾതന്നെ സുരക്ഷിത സ്ഥലങ്ങളി ലേക്ക് മാറുകയും ജാഗ്രത പാലിക്കുകയും വ്രേണ്മെന്ന് മുന്ന റിയിപ്പിൽ പറയുന്നു ശ്രീലങ്കയുടെ തെക്കുകിഴക്ക് രൂപപ്പെടുന്ന ന്യൂനമർദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസം പ്യാപ്കമായ മഴയും കാറ്റും ഉണ്ടായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കന്ത്ത മഴയും പെയ്തേക്കും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് ലോക മലമ്പനി ദിനം ആചരിക്കുന്നു

മലമ്പനി നിവാരണം എന്നിൽ നിന്ന് ആരംഭിക്കും എന്നതാണ് ഇൌ വർഷത്തെ ദിനാചരണ സന്ദേശം

കോഴിക്കോട് ജില്ലാതല ദിനാ ചരണം പുതിയാപ്പയിൽ ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രീമിയർലീഗ് ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി എട്ടിന് കൊൽക്കത്ത് ഈഡൻ ഗാർഡൻസിലാണ് മത്സരം കോട്ടയം റെയിൽവെ സ്റ്റേഷനിൽ മേൽപ്പാലം പൊളിച്ചുമാ റ്റുന്നതിനാൽ മറ്റന്നാൾ ട്രെയിൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടു ത്തി തിരുവനന്തപുരത്തുനിന്നും കോട്ടയം വഴിയുളള പരശുറാം കേരള ശബരി ഐലന്റ് ജയന്തി തുടങ്ങിയ എക്സ്പ്രസ് ട്രെയി നുകളും ലോകമാന്യതിലക് കൊച്ചുവേളി ഗരീബ് രഥ് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഉൾപ്പെടെ പത്ത് ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും

ഗുരുവായൂർ പുനലൂർ പാസഞ്ചർ എറണാകുളം ടൌൺ സ്റ്റേഷനിലും കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ റെയിൽവെ സ്റ്റേഷനിലും യാത്ര അവസാനിപ്പിക്കും കണ്ണൂർ തോട്ടടയ്ക്കടുത്ത് ബ്രൈക്ക് തട്ടി കാൽനടയാത്രക്കാരി മരിച്ചു

കോഴിക്കോട് മത്സ്യമാർക്കറ്റിൽ കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പും ഭക്ഷ്യ്സുരക്ഷാ വിഭാഗവും നടത്തിയ പരിശോധനയിൽ അമോണിയിക്ലർത്തിയതായി സംശയിക്കുന്ന മത്സ്യം കണ്ടെ ത്തി വിദഗ്ധ പ്രിശോധനക്കായി സാമ്പിൾ ശേഖരിച്ചു

മനക്കൽതാഴെ സുനിലിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ അക്രമമുണ്ടായത് പൊലീസ് അന്വേഷണം തുടങ്ങി പാമ്പ് പിടുത്തക്കാരുടെ സംഗമവും സംസ്ഥാന കമ്മറ്റി രൂപീകരണവും നാളെ പാലക്കാട് കൈപ്പുറത്തു നടക്കും